അതിർത്തിയിൽ ചൈന പ്രകോപനം ഉണ്ടാക്കിയാൽ നേരിടാൻ സൈനൃത്തിന് പൂർണ്ണ സ്വാതന്ത്രൃം നിയന്ത്രണ രേഖയിൽ പട്രോളിംഗ് ഊർജ്ജിതപ്പെടുത്താനും രാജ്യരക്ഷാ മന്ത്രിയുടെ നിർദ്ദേശം

രാജ്യത്ത് കോവിഡ് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഒരു ദിവസം രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന നിരക്കാണിത്

പ്രതിരോട്ടിരിന്റെ ഓരോ ഘട്ടത്തി ലും മുഖ്യമന്ത്രി രാഷ്ട്രീയം കളിച്ച് യോജിപ്പിന്റെ അന്തരീക്ഷം ഇല്ലാതാക്കിയെന്നും പ്രതിപക്ഷി നേതാവ് തിരുവനന്തപുരത്ത് ഇന്നലെ വാർത്താസമ്മേളനിത്തിൽ ആരോപിച്ചു

ഡി എഫ് പ്രവർത്തകർ സത്യാഗ്രഹം നടത്തു മെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു

ലഡാക്കിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഇന്നലെ രാജൃരക്ഷാ മന്ത്രി വിളിച്ചു ചേർത്ത ഉന്നത തല യോഗത്തിലാണ് തീരുമാനം കര നാവിക വ്യോമ അതിർത്തി കളിലുള്ള ചൈനയുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന്റെ സൂക്ഷ്മ നിരീക്ഷണത്തിലാണെന്ന് ഉറപ്പുവരു ത്താനും ഉന്നതതല യോഗത്തിൽ തീരുമാനമായി അതിർത്തി മേഖലയിൽ പട്രോളിംഗ് ഊർജ്ജിതപ്പെടുത്താനും യോഗത്തിൽ ധാരണയായി സംയുക്ത സേനാ തലവൻ ജനറൽ ബിപിൻ റാവത്ത് കരസേനാ മേധാവി എം

നർവണേ നാവിക സേനാ മേധിവി അഡ്മിറൽ കരംബീർ സിംഗ് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ ആർ

ബദൌരിയ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു

മേഖലയിൽ ഭീകരരുടെ സാന്നിധ്യം ഉണ്ടെന്ന വിവരത്തെ തുടർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ഏറ്റുമുട്ട ലുണ്ടായത് കുൽഗാം ജില്ലയിലെ ലിഗ്ധിപോറയിലുണ്ടായ മറ്റൊരു ഏറ്റുമുട്ടലിൽ ജെയ്ഷെ ഇ മുഹമ്മദ് ഭീകര സംഘടനയിൽപ്പെട്ട യാളാണ് കൊല്ലപ്പെട്ടത്